ബലാംഗീറിൽ ബി

സി എല്ലിന്റെ എൽ

ജി ബോട്ടിലിങ് പ്താന്റ് ഉപരാഷ്ട്രപതി ഉദ്ഘാടനം ചെയ്യും

ശബരിമലയിൽ ഇന്ന് മണ്ഡലപൂജ വൻ ഭക്തജനത്തിരക്ക്

ചൈന റഷ്യ ഇറാൻ സംയുക്ത നാവികാഭ്യാസ പ്രകടനം ഒമാൻ കടലിൽ ഇന്ന് ആരംഭിക്കും

മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ സുനിൽ അറോറ തെരഞ്ഞെടുപ്പ് കമ്മീഷണർമാരായ അശോക് ലവാസ സുശീൽ ചന്ദ്ര എന്നിവർ യോഗം ചേർന്നാണ് ഒരുക്കങ്ങൾ വിലയിരുത്തിയത് ഡൽഹി മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസറും ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസർമാരും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ഡൽഹി ചീഫ് സെക്രട്ടറി പൊലീസ് കമ്മീഷണർ എന്നിവരുമായും തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പ്രത്യേക യോഗം ചേർന്നു

വെള്ളിയാഴ്ച പ്രാർത്ഥനയുടെ പശ്ചാത്തലത്തിൽ പൊല്ലീസ് ബോധവൽക്കരണവും നടത്തുന്നുണ്ട്

ഇവരുടെ സ്വത്ത് കണ്ടുകെട്ടുന്നതിന് പൊലീസ്ക്നോട്ടീസ് അയച്ചു

അയ്യായിരത്തിലധികം പേരെ കസ്റ്റഡിയിലെടുത്തു

ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനങ്ങളുമായി ബന്ധപ്പെട്ട അക്രമസംഭവങ്ങളിൽ അറസ്റ്റിലായവരുടെ ജാമ്യാപേക്ഷയെ ഡൽഹി ്പോലീസ് കോടതിയിൽ എതിർത്തു

ജി

ഗവർണർ പ്രൊഫസർ ഗണേഷി ലാൽ മുഖ്യമന്ത്രി നവീൻ പട്നായിക് കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ എന്നിവർ സംബന്ധിക്കും

മുഖ്യമന്ത്രി പിണറായി വിജയൻ രാവിലെ ബാലശാസ്ത്ര കോൺഗ്രസ്സ് ഉദ്ഘാടനം ചെയ്യും

ശശി തരൂർ എം

തിങ്കളാഴ്ച വൈകിട്ട് ശാസ്ത്ര കോൺഗ്രസ്റ്റിനോടനുബന്ധിച്ച് നടക്കുന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതി എം

ഇതാദ്യമായാണ് കേരളം ദേശീയ ബാലശാസ്ത്ര കോൺഗ്രസ്സിന് വേദിയാകുന്നത് ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഈ ലക്ഷ്യം കൈവരിക്കുന്നതിനായി തുടർച്ചയായ സംഘടിത ശ്രമം ആവശ്യമാണെന്ന് അദ്ദേഹം പറഞ്ഞു കശ്മീരിലെ ഗണ്ടർബാലിൽ പോലീസ് സി

ജനുവരി ഒന്നു മുതൽ പതിനഞ്ച് വരെ പാർട്ടി പ്രവർത്തകർ ജനങ്ങളെ നേരിൽ സന്ദർശിച്ച് പൌരത്വ നിയമത്തിനെതിരായി കോൺഗ്രസ് നടത്തുന്ന കുപ്രചരണങ്ങളെക്കുറിച്ച് ബോധവാന്മാരാക്കുമെന്ന് മുൻ മുഖ്യമന്ത്രി ശിവ്രാജ് സിംഗ് ചൌഹാൻ ഭോപ്പാലിൽ അറിയിച്ചു

സംസ്ഥാന മന്ത്രിസഭാ യോഗമാണ് തീരുമാനമെടുത്തത്

ഗ്രാമ ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തുകൾക്കും മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ എന്നിവയ്ക്കും ഇത് ബാധകമാണ്

ജനസംഖ്യ വർധനവിന് ആനുപാതികമായി അംഗങ്ങളുടെ എണ്ണം വർധിപ്പിക്കുക എന്നതാണ് ലക്ഷ്യം

എസ് ആർ ഒ മുൻ ശാസ്ത്രജ്ഞൻ എസ്

ചരക്കു സേവന നികുതി ഭേദഗതി നിയമനത്തിനനുസൃതമായി തയ്യാറാക്കിയ ഓർഡിനൻസ് പുറപ്പെടുവിക്കാനും ഗവർണറോട് ശുപാർശ ചെയ്യും

എസ് ഐ

എസ് പ്രമോഷൻ പാനലിനും മന്ത്രിസഭ അംഗീകാരം നൽകി

ആദിവാസി വികസന വകുപ്പിന്റെ പ്രപ്രവർത്തനങ്ങൾ അവലോകനം ചെയ്യാൻ ഇന്നലെ മുംബൈയിൽ ചേർന്ന് യോഗത്തിലാണ് അദ്ദേഹം ഈ പ്രഖ്യാപനം നടത്തിയത്

സർവ്വീസ് ദീർഘിപ്പിക്കൽ കേന്ദ്ര മന്ത്രി ഉദ്ഘാടനം ചെയ്തു

ഇന്നലെ എത്തിച്ച തങ്കഅങ്കി അയ്യപ്പവിഗ്രഹത്തിൽ ചാർത്തി രാവിലെ പത്തരയ്ക്കാണ് മണ്ഡലപൂജ

പരസ്പര സഹകരണം മെച്ചപ്പെടുത്താനും നാവികാന്യുഭൂവങ്ങൾ പങ്കുവയ്ക്കുകയുമാണ് ലക്ഷ്യമെന്ന് അദ്ദേഹം അറിയിച്ചു

മുഖ്യമന്ത്രി വി നാരായണ സ്വാമി മന്ത്രിമാർ എം

ഐ

സി സെക്രട്ടറി സൻജ ദത്ത് ഡി എം

എഫ്

പൌരത്വ നിയമത്തെ അനുകൂലിച്ച് ബിജെപി യും ഇന്ന് പുതുച്ചേരിയിൽ റാലി നടത്തും സംസ്ഥാന പ്രസിഡന്റ് സ്വാമിനാഥൻ നേതൃത്വം നൽകും

അമാൻ ലോഡ്ജ് മത്തേരൺ സ്റ്റേഷനുകൾക്കിടയിലാണ് സർവ്വീസ് ആരംഭിക്കുകയെന്ന് സെൻട്രൽ റെയിൽവേ അധികൃതർ അറിയിച്ചു

തീവ്രവാദ സംഘടനകൾക്ക് വ്യാപാരിക്ൾ പണം നൽകണമെന്നാവശ്യപ്പെട്ടുള്ള തർക്കത്തിനിടെയായിരുന്നു വെടിവയ്പ്

തട്ടിക്കൊണ്ടു പോയത് എന്തിനായിരുന്നുവെന്ന് മനസ്സിലായിട്ടില്ലെന്ന് ജനകീയ സമാധാന പ്രസ്ഥാനത്തിന്റെ നേതാവ് ബിസ്മില്ല വഡൻ ദോസ്ത് പറഞ്ഞു എന്നാൽ സമാധാന പ്രവർത്തകരെ മോചിപ്പിക്കാൻ ശ്രമിക്കുമെന്ന് ദോഹയിലെ താലിബാൻ നേതാക്കൾ അറിയിച്ചിരുന്നു